ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ സ്ലന്ദർശനം നടത്തി കിഫ്ബി പദ്ധതികളിൽ സ്കി

ജി ഓഡിറ്റ് ന് അനുവദിക്കാത്തിനെതിർ പ്രതിപക്ഷനേതാവ് ഗവർണർക്ക് കത്തയച്ചു

ഊർജ്ജിതം

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അദ്ധ്യക്ഷതയിൽ ഉച്ചതിരിഞ്ഞ് തിരുവനന്തപുരത്താണ് യോഗം ചേർന്നത് അതിനിടെ ഫ്ളാറ്റ് ഒഴിയാനുള്ള സമയപരിധി അവസാനിച്ചതോടെ നഗരസഭ ഫ്ളാറ്റുകളിൽ നോട്ടീസ് പതിച്ചു താൽക്കാലിക പുനരധിവാസത്തിന് അപേക്ഷിക്കാനുള്ള സമയപരിധിയും ഇന്ന് അവസാനിച്ചു ഇന്ന് വൈകിട്ട് മൂന്ന് മണി വരെയാണ് താൽക്കാലിക പുനരധിവാസത്തിന് അപേക്ഷ സമർപ്പിക്കാൻ സമയം നൽകിയിരുന്നത് എന്നാൽ ആരും അപേക്ഷ നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്

തങ്ങൾ ഫ്ളാറ്റുകളിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിയില്ലെന്ന് ഫ്ളാറ്റുടമകൾ പ്രതികരിച്ചു

എസ് മരട് ഫ്ളാറ്റ് നിർമ്മാതാക്കളെ കുരിപ്പ്ട്ടികയിൽപ്പെടുത്തണമെന്ന് ഭരണപരിഷ്ക്കാര കമ്മീഷൻ അദ്ധ്യക്ഷൻ ്വി

അച്യുതാനന്ദൻ

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ രവികുമാർ

കേന്ദ്ര ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി പ്രകാശിന്റെ നേതൃത്വത്തിൽ ഏഴംഗ സംഘമാണ് ജില്ലയിൽ എത്തുക ഉരുൾപൊട്ടലിൽ കനത്ത നാശം വിതച്ച പുത്തുമലയും കുറിച്യർമലയും അടക്കമുള്ള ജില്ലയില്ലെ പ്ലവിധ പ്രളയ ബാധിത പ്രദേശങ്ങൾ സംഘം സന്ദർശിക്കൂട്ടു സംസ്ഥാന ദുരിതാശ്ചാസ കമ്മീഷ്ണറും റവന്യൂ അഡീഷണിൽ ചീഫുമായ വി വേണുവും സംഘത്തിനൊപ്പമുണ്ടാകും

ജി ഓഡിറ്റ് അനുവദിക്കാത്ത ഗവൺമെന്റിന്റെ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ർമേശ് ചെന്നിത്തല ഗവർണർക്ക് കത്തയച്ചു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിലാണ് ശ്രീ

സ്വകാര്യ കമ്പനികളെ കിഫ്ബി പദ്ധതികളുടെ ഓഡിറ്റിംഗിന് നിയമിച്ചത് അഴിമതിയാണെന്നും അദ്ദേഹം ആരോപിച്ചു

ജി ഓഡിറ്റ് നിഷേധിക്കുന്ന ഗവൺമെന്റ് നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു കിഫ് ബി ഐസക് കിഫ് ബിയുടെ എല്ലാ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ചും സി എ ജി യ്ക്കു ഓഡിറ്റ് നടത്താമെന്ന് ധനമന്ത്രി തോമസ് ഐസക് ഇതിന് ഗവൺമെന്റ് അനുമതി നല്കും

പ്രതിപക്ഷനേതാവ് കിഫ് ബി യെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ശ്രീ തോമസ് ഐസക് ആരോപിച്ചു

എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മൂതൽ മൂന്നുദിവസം പാലായിൽ ക്യാമ്പുചെയ്യും യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോമിന്റെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി നാളെ പാലായിലെത്തും കേന്ദ്ര മന്ത്രി വി മുരളീധരൻ എൻ ഡി എ സ്ഥാനാർത്ഥി എൻ ഹരിയുടെ പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കും

സംസ്ഥാന വനിത ശിശുവികസന വകുപ്പിന്റെ പോഷൻ മാസാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി

അപകടത്തിൽപ്പെടുന്നവരെ അടിയന്തിരമായി ആശുപത്രികളിലേക്ക് എത്തിക്കുന്നതിനുള്ള സമഗ്ര ട്രോമകെയർ സംവിധാനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാൻ പലരും തയ്യാറാകാത്തത് തുടർന്നുള്ള നടപടി കുരുക്കുകൾ ഭയന്നിട്ടാണ് ഇനി മുതൽ അത്തരം കുരുക്കുകൾ നേരിടേണ്ടിവരില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഗവൺമെന്റ് ആശുപത്രികൾക്ക് പുറമെ സ്വകാര്യ ആശുപത്രികളുടെ സേവനവും പദ്ധതിയിൽ പ്രയോജനപ്പെടുത്തും

ആംബുലൻസുകളിൽ പരിശീലനം സിദ്ധിച്ച പൈലറ്റും എമർജൻസി മെഡിക്കൽ ടെക് നീഷ്യനും അടങ്ങുന്ന ജീവനക്കാരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്

മെമ്മറി കാർഡ് തൊണ്ടിമുതലാണ്

ഈ രേഖ കൈമാറുന്നത് ഇരയുടെ സ്വകാര്യതക്കും സുരക്ഷക്കും ഭീഷണിയാണെന്ന് ഗവൺമെന്റ് കോടതിയെ അറിയിച്ചു മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ രേഖയാണോ തൊണ്ടിമുതലാണോ എന്ന് സുപ്രീംകോടതി ഇന്നലെ ചോദിച്ചിരുന്നു

ആദ്യ മത്സരം ഞായറാഴ്ച ഹിമാചൽപ്രദേശിലെ ധർമശാലയിൽ മഴയെത്തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു

ആലുവ പടിഞ്ഞാറെ പുക്ടുങ്ങ്ലൂർ ജുമാ മസ്ജിദിലായിരുന്നു സംസ്കാരം ഫോട്ടോഗ്രാഫി വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വനം വന്യജീവി വകുപ്പ് സംഘടിപ്പിക്കുന്ന വന്യജീവി ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു

വാർഷികാ ഘോഷത്തിന്റെ ഭാഗമായി ഒരുവർഷം നീണ്ടുനിൽക്കുന്ന പരിപാടിക ളാണ് സംഘടിപ്പിക്കുന്നത് ഗവൺമെന്റ് വിദ്യാലയം കോഴിക്കോട് നടക്കാവ് വൊക്കേഷണൽ ഹയർ സെക്കണ്ടറി സ്കൂൾ ഇന്ത്യയിലെ രണ്ടാമത്തെ മികച്ച ഗവൺമെന്റ് വിദ്യാലയം എന്ന അംഗീകാരത്തിന്റെ നിറവിൽ സ്കൂളിൽ നടപ്പാക്കിയ പ്രിസം പദ്ധതിയാണ് സ്കൂളിന്റെ മികവിന് ഇടയാക്കിയത്

ന്റാള്ള ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ച് ഫയർഫോഴ്സ്ുമായി ചേർന്ന് സ്ംയുക്ത പരിശോധന നടത്തും

ഹരിതകേരളം മിഷൻ ഫ്ളോട്ട് ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ ഹരിതകേരളം മിഷൻ തയ്യാറാക്കിയ ഫ്ളോട്ട് ശ്രദ്ധേയമായി പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ച് പരിസ്ഥിതി സൌഹൃദ കേരളം പുനർനിർമ്മിക്കാം എന്ന സന്ദേശം നൽകിയാണ് ഹരിതകേരളം മിഷൻ ഫ്ട്ളോട്ട് അവതരിപ്പിച്ചത്